കൊറോണ വൈറസ് ബാധ രാജ്യത്തെ വ്യവസായ രംഗത്തുണ്ടാക്കിയ സ്വാധീനം നേരിടുന്നതിന് മാർഗ്ഗങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് ധനമന്ത്രി നിർമല സീതാരാമൻ

ജാമിയ മിലിയ അക്രമസംഭവത്തിൽ ഷർജീൽ ഇമാമിനെ സൂത്രധാരനാക്കി ഡൽഹി പൊലീസിന്റെ കുറ്റപത്രം

ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സുനിൽ കുമാർ ഫൈനലിൽ പ്രവേശിച്ചു

മരുന്ന് വസ്ത്രനിർമ്മാണം വാഹനരംഗം ടെലികോം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ അഭിപ്രായങ്ങൾ പങ്കുവച്ചതായി ധനമന്ത്രി യോഗത്തിന് ശേഷം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ ക്ട്റിറ്റിയിച്ചു ചൈനയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്ക്ളുടെ വരവു നിലച്ചത് മരുന്ന് രാസവസ്തുക്കൾ സൌരോർജ്ജ ഉപകരണങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് മേഖലകളെ ബാധിച്ചതായി യോഗം വിലയിരുത്തി മാർഗ്ഗങ്ങളെക്കുറിച്ചും ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായി നാളെ ചർച്ച ചെയ്യും വില വർദ്ധിക്കുന്ന സാഹചര്യം രാജ്യത്ത് നിലവിലില്ലെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു

ബി

വുഹാനിൽ നിന്നും പ്രത്യേക വിമാന മാർഗ്ഗമാണ് ഇവരെ ഡൽഹിയിലെത്തിച്ചത്

ഇവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിയതായി ആരോഗ്യ വകുപ്പ് അധികൃതർ അറിയിച്ചു

കപ്പലിലുള്ള എല്ലാവരെയും കൊറോണ വൈറസ് പരിശോധനയ്ക്ക് വിധേയമാക്കിയിരിട്ടിയി ജപ്പാൻ ഗവൺമെന്റ് മുൻപ് തന്നെ വൃക്തമാക്കിയിരുന്നൂ ഇപ്പരിൽ കൊറോണ വൈറസ് ബാധയില്ലെന്ന് കണ്ടെത്തിയവരെന്റാളെ മുതൽ വിട്ടയയ്ക്കും

സി

വി

ഷർജീൽ ഇമാമാണ് അക്രമങ്ങളുടെ സൂത്രധാരൻ എന്ന് കുറ്റപത്രത്തിൽ പറയുന്നു

വോയ്സ് പൌരത്വ ഭേദഗതി നിയമം ദേശീയ പൌരത്വ പട്ടിക ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ ഇവ മൂന്നും മൂന്ന് വ്യത്യസ്ത വിഷയങ്ങളാണെന്നും ശ്രീ

സിന്ധുദൂർഗിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൌരത്വ ഭേദഗതി നിയമം ആരുടെയും പൌരത്വം നഷ്ടപ്പെടുത്തില്ലെന്നും ശ്രീ

ദേശീയ പൌരത്വ പട്ടിക രാജ്യമൊട്ടാകെ നടപ്പാക്കുന്ന കാര്യം പരിഗണനയില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇതിൽ ആശങ്ക വേണ്ടെന്നും ശ്രീ താക്കറെ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

യോഗി ആദിത്യനാഥ് സർക്കാറിന്റെ നാലാമത് ബഡ്ജറ്റ് ആണ് ഇത്

രാമബ്രഹ്മം അറിയിച്ചു

ഉൽപ്പാദന ചെലവ് കുറച്ചും മെച്ചപ്പെട്ടയിനം കന്നുകാലികളെ ലഭ്യമാക്കിയും ക്ഷീരോത്പാദനം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു വരികയാണെന്ന് കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ മന്ത്രാലയം അറിയിച്ചു

ആവശ്യമായ പരിശോധനയിലൂടെ പാലിന്റെ ഗുണനിലവാരം ഉയർത്തുന്ന്തിനും സുരക്ഷിതമാക്കാനുമായി പുതിയ പദ്ധതി ആരംഭിച്ചതായും മുന്ത്രാലയം വൃക്തമാക്കി

ജെ

നിയമസഭാകക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി ബി ജെ

ത്ധാർഖണ്ഡിൽ ഇതിനായി പാർട്ടി ജനറൽ സെക്രട്ടറി മുരളീധർ പി റാവുവിനേയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്

ജെ

ദേശീയ അധ്യക്ഷൻ ജെ

നദ്ദയാണ് നിയമനങ്ങൾക്ക് അനുമതി നൽകിയത്

തമിഴ്നാട്ടിലെ രാമേശ്വരത്തിന് സമീപം ധനുഷ് കോടിയിൽ ലൈറ്റ് ഹൌസ് നിർമ്മാണത്തിന് ശിലാ സ്ഥാപനം നിർവഹിക്കവെയാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്

ഈ ശനിയാഴ്ച വരെ നിർദ്ദേശങ്ങൾ നൽകാവുന്നതാണ്

ക്ഷെനലിൽ സുനിൽകുമാർ കിർഗിസ്ഥാൻ താരം അസദ് സാലിദിനോ്പിനെ നേരിടും

ഞായറാഴ്ച രാത്രി കറാച്ചിയിലെ കിയാമാരി മേഖലയിലാണ് സംഭവം ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് നിരവധി പേരാണ് ആശുപത്രിയിലേക്ക് എത്തിയത് വാതകം ഏതാണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല